സംവദിക്കും

ഉറപ്പൂവരുത്തുന്ന പ്രധാൻമന്ത്രി അന്ന്ദാ്താ ്മൂല്യ സംരക്ഷണ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാര്ം

ഇന്ന് രാജ്യമെമ്പാടും ഗണേശ് ചതുർത്ഥി ആഘോഷിക്കുന്നു

മാലദ്വീപിനെ നേരിടും

ജെ

പടിഞ്ഞാറൻ അരുണാചൽ ഗാസിയാബാദ് ഹസാരിബാഗ് ജയ്പൂർ റൂറൽ നവാസാ എന്നീ പാർലമെന്റ് മണ്ഡലങ്ങളിലെ കാര്യകർത്താക്കളുമായി വിദൂര സംവാദ സംവിധാനത്തിലൂടെ സംവദിക്കുന്നത് മേരാ ബൂത്ത് സബ്സേമസ്ബൂത്ത് സംവാദ് എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് സംവാദം

പ്രത്യാശയോടെയാണ് പരിപാടിയെ കാണുന്നതെന്ന് ശ്രീ

ഇന്നലെ പ്രധാനമന്ത്രി ആശ അങ്കനവാടി പ്രവർത്തകർ ആർോഗ്യ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്നിവരുമായി സ്ംവദിച്ചിരുന്നു

വിരാട് ഹിന്ദുസ്ഥാൻ സംഘം സംഘടിപ്പിച്ച ഇന്ത്യ ശ്രീലങ്ക ബന്ധത്തെക്കുറിച്ചുളള പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ശ്രീ രാജപക്സെ

എം ആഷയ്ക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം

എ ഗവൺമെന്റിന്റെ ഈ വർഷത്തെ ബജറ്റ് പ്രഖ്യാപനങ്ങളിലൊന്നായിരുന്നു ഇത് കാർഷികോത്പന്നങ്ങളുടെ വില കടാശ്വാസ പദ്ധതികൾ വിളവെടുപ്പ് സംഭരണം തുടങ്ങിയ മേഖലകളിലെല്ലാം കർഷകർക്ക് ആനുകൂലൃങ്ങളും ആശ്ചാസവും നൽകുന്നതാണ് പദ്ധതിയെന്ന് മന്ത്രിസഭാ യോഗത്തിനുശേഷം കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി രാധാ മോഹൻസിംഗ് മാധ്യമങ്ങളോട് പാഞ്ഞു

ഇതുമായി ബന്ധപ്പെട്ട് ശ്രീമതി മമത കേന്ദ്രത്തിന്റെ അനുമതി തേടിയിരുന്നില്ല അതിനാൽ അനുമതി നിഷേധിച്ച റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ പറഞ്ഞു

മരണമടഞ്ഞ ജസ്വീന്ദർ സിങ്ങിന്റെ കുടുംബം നൽകിയ പുനപരിശോധന ഹർജിയിലാണ് ജസ്റ്റിസുമാരായ എ

ഖാൻവീൽക്കർ സജ്ജയ് കിഷൻകൌൾ എന്നിവരടങ്ങിയ ബെഞ്ച് പുനപരിശോധനാ ഉത്തരവ് പുറപ്പെടുവിച്ചത് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി സിദ്ദുവിനെതിരെ മനപ്പൂർവ്വമല്ലാത്ത നരഹത്യാകുറ്റം ചുമത്തി മൂന്ന് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു

ഓൺലൈനിലൂടെ പുകയില ഉൽപ്പന്നങ്ങളുടെ പ്രചരണം വ്യാപകമായ സാഹചര്യത്തിലാണ് നടപടി പുകവലി പ്രോൽസാഹിപ്പിക്കുന്നതരത്തിൽ പരസ്യം നൽകുക മറ്റ് പേരുകളിൽ സിഗരറ്റ് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുക എന്നിവയാണ് ഇ സിഗരറ്റ് എന്ന പേരിൽ നടന്നുവന്നിരുന്നത് നിരോധിക്കപ്പെട്ട കവറുകളിലൂടെയും വ്യാപകമായ പരസ്യത്തിലൂടെയും ഇ സിഗരറ്റ് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ സജീവമായിരുന്നു ഇതേ തുടർന്നാണ് തമിഴ്നാട് ഗവൺമെന്റിന്റെ ഇടപെടൽ ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ പബ്ലിക് ഹെൽത്ത് പ്രിവന്റീവ് മെഡിസിൻ ഡയറക്ടർ നിർദ്ദേശിച്ചു

കെയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിക്കാനാകുമോ എന്ന കാര്യത്തിൽ ഡിസംബർ പത്തിന് യു

കോടതി വിധി പറയും മല്യയെ ബ്രിട്ടനിൽ നിന്നു വിട്ടുകിട്ടുന്നതിനുള്ള നടപടിയുടെ ഭാഗമായി ഇന്ത്യയിലെ ജയിലിൽ അദ്ദേഹത്തിന് കഴിയാനാകുമോയെന്നു വിശദമായി പരിശോധിക്കുമെന്ന് ലണ്ടൻ കോടതി നേരത്തേ അറിയിച്ചിരുന്നു മുംബൈ ആർതർ റോഡിലെ ജയിലിൽ ഇതിനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു

കോടതിയിൽ ഈ വിഷയം സംബന്ധിച്ച് വ്ടിശദമായ വാദം നടന്നിരുന്നു തുടർന്നാണ് ഡിസംബർ ച്ചത്തിന് ഇക്കാര്യത്തിൽ വിധി പറയുമെന്ന് ചീഫ് മജിസ്ട്രേറ്റ് എമ്മിഅ്ർബുത്നോട് ഇക്കാര്യം വ്യക്തമാക്കിയത്

വിജയ്മല്യയ്ക്ക് തന്നെ കാണാൻ അനുവാദം നൽകിയിട്ടില്ല

ലണ്ടനിൽ വിജയ് മല്യ നടത്തിയ പ്രസ്താവന സത്യമാണെങ്കിൽ അത് തെളിയിക്കണമെന്ന് ശ്രീ

ന്യൂഡൽഹിയിൽ ഒരു വാർത്ത ഏജൻസിയോടു സംസാരിക്കുന്നതിനിടെയാണ് ധനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്

പത്താംദിനം ഭഗവാൻ ഗണേശന്റെ വിഗ്രഹം സമുദ്രത്തിൽ നിമഞ്ജനം ചെയ്യുന്ന ചടങ്ങോടെയാണ് ഗണേശോൽസവം സമാപിക്കുന്നത് വിശദാംശങ്ങളുമായി അർച്ചന സതീശ്

മഹാരാഷ്ട്രയിൽ സമൂഹത്തിലെ നാനാതുറകളിലുള്ളവർ ഇന്ന് ഗണ്ണൂശ ്വിഗ്രഹം പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നു മദ്ധ്യപ്രദേശിൽ ഗണേശ് ചതുർത്ഥിയോട് അനുബന്ദിച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസിന് പകരം കളിമണ്ണിൽ തീർത്ത് ഗണേശ വിഗ്രഹങ്ങൾ വാങ്ങാൻ പ്രോൽസാഹിപ്പിക്കുന്ന പ്രചാരണങ്ങൾക്ക് വൻ സ്വീകാര്യത സംസ്ഥാനത്തെ പ്രകൃതി സൌഹൃദമാക്കി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണിത് ഭോപ്പാലിലെ രണ്ട് യുവാക്കൾ ചാണകത്തിൽ തീർത്ത ഗണേശ വിഗ്രഹങ്ങൾക്കും ജനപ്രീതി ഏറെയാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് എല്ലാ പൌരൻമാർക്കും ഗണേശ ചതുർത്ഥി ആശംസകൾ നേർന്നു നാനാതുറകളിൽ നിന്നുള്ള ജനങ്ങളെ ഈ ആഘോഷം ഒത്തൊരുമിപ്പിക്കട്ടെയെന്ന് രാഷ്ട്രപതി ആശംസിച്ചു പുരോഗതിയുടെ പാതയിലേക്ക് ഭഗവാൻ ഗണേശൻ നമ്മെ നയിക്കുകയും ശാന്തിയും സന്തോഷവും സമൃദ്ധിയും ജനങ്ങൾക്ക് സമ്മാനിക്കുകയും ചെയ്യട്ടെ എന്ന് രാഷ്ട്രപതി ആശംസിച്ചു ഉപരാഷ്ട്രപതി എം

ജ്ഞാനം സമൃദ്ധി ഗുണഫലങ്ങൾ എന്നിവയുടെ മൂർത്തിമദ് ഭാവമാണ് ഭഗവാൻ ഗണേശനെന്നും രാജ്യത്ത് ശാന്തിയും സമൃദ്ധിയും സാഹോദര്യവും ഉണ്ടാകട്ടെ എന്നും ഉപരാഷ്ട്രപതി ആശംസിച്ചു

ഉത്തര ദക്ഷിണ കരോലിന പ്പിർജീനിയ എന്നിവിടങ്ങളിൽ നിന്ന് ഏകദേശം ഒന്നേമുക്കാൽ ദൾലക്ഷം പേരോട് പ്രദേശം വിട്ടുപോകാൻ അധികൃത്ർ നിർദ്ദേശിച്ചു

ദുരന്ത സാധ്യത മുൻനിർത്തി ജോർജിയയിലും തുടർന്ന് കരോലിന മിർജിനിയ മാരിലാൻഡ് വാഷിംഗ്ടൺ ഡി സി എന്നിവിടങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു

തെരഞ്ഞെടുപ്പിലോ പ്രചാരണ പ്രവർത്തനങ്ങളിലോ ഉള്ള ഇടപെടലുകൾക്ക് ഒപ്പം തെറ്റായ സന്ദേശകൈമാറ്റം നുണപ്രചരണം എന്നിവയ്ക്കും ഉത്തരവ് ബാധകമാണെന്ന് അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേശകൻ ജോൺ ബോൾട്ടൻ പറഞ്ഞു ഇതിനായി ആഭ്യന്തര ധനകാര്യ വകുപ്പുകളെ ചുമതലപ്പെടുത്തിയതായും ജോൺ ബോൾട്ടൺ അറിയിച്ചു

സിന്ധു കിഡംബി ശ്രീകാന്ത് എന്നിവർ ഉൾപ്പെടെ ഏഴ് ഇന്ത്യൻ താരങ്ങൾ കാർട്ടർ ഫൈനൽ ഉറപ്പിക്കാൻ ഇന്ന് ഇറങ്ങുന്നു വിശദാംശങ്ങളുമായി അർച്ചനാസതീശ്

ഇന്തോനേഷ്യൻ താരം അന്തോണി സിനിസുക ഗിൻറ്റിങ്ങിനെയാണ് ഇന്ത്യൻ താരം എച്ച്

പുരുഷ വിഭാഗം ഡബിൾസിൽ മനു അത്രിയും ബി സുമീത് റെഡ്ഡിയും ഇന്ന് കളിക്കളത്തിലിറങ്ങും

സുമീത് റെഡ്ഡിയും ഒളിമ്പിക് ജേതാക്കളായ മലേഷ്യൻ താരങ്ങളെ പരാജയപ്പെടുത്തിയാണ് അടുത്ത ഘട്ടത്തിലേക്കു കടന്നത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ശ്യോൾ രഹിതമായിരുന്ന ആദ്യ പാദത്തിനുശേഷം മൻവീർസിങ്ങിൻ്റെ ഇരട്ട ഗോളും സുമിത് പാസിയുടെ ഒരു ഗോളിന്റെയും മികവിൽ ഇന്ത്യ മുന്നിലെത്തുകയായിരുന്നു പാകിസ്ഥാനുവേണ്ടി ഹസൻ ബഷീർ ആശ്വാസ ഗോൾ നേടി നിലവിലെ സാഫ് ഗെയിംസ് ജേതാക്കളാണ് ഇന്തൃ ഏഴ് തവണ ഇന്ത്യ സാഫ് കപ്പ് ജേതാക്കളായിട്ടുണ്ട്

സംസ്ഥാനത്ത് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇഎസ്ഐ ഡിസ്പെൻസറി പ്രവർത്തനം ആരംഭിക്കുന്നത്